ഛത്തിസ്ഗഡിൽ രണ്ടിമുത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് നാള്ളെ ഒരുക്കങ്ങൾ പൂർത്തിയായി

സാമൂദായിക സൌഹാർദ്ദവും ദേശീയോദ്ഗ്രഥനവും പരിപോഷിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ക്വാമി ഏകതാ വാരത്തിന് തുടക്കം

ശബരിമല വിഷയത്തിൽ ദേവസ്വം ബോർഡ് ഇന്ന് സുപ്രീംകോടതിയിൽ സാവകാശ ഹർജി സമർപ്പിക്കും കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ശബരിമലയിൽ

പാകിസ്ഥാന് സൈനിക സഹായം നിർത്തിവച്ച യു എസ് നടപടി പ്രസിഡന്റ് ട്രംപ് ശരിവച്ചു

സ്ഫോടക വസ്തു പരിശോധനാ വിദഗ്ധരും സംഘത്തോടൊപ്പമുണ്ട് പഞ്ചാബ് ഡി ജി പി ഇന്റലിജൻസ് മേധാവി എന്നിവരുമായി സംഘം ചർച്ച നടത്തി

അതിനിടെ സംസ്ഥാനത്തെ നിരങ്കാരി ഭവനുകൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു

സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ കക്ഷികളും വീടുവീടാന്തരമുള്ള പ്രചാരണത്തിലാണ് ഇപ്പോൾ മുഴുകിയിരിക്കുന്നത്

സ്തുഗ്മമായ വോട്ടെടുപ്പിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സുബ്രത് സാഹു അറിയിച്ചു

തീരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒ

റാവത്ത് ഇന്ന് ഭോപ്പാലിലെത്തുകയാണ്

തുടർന്ന് സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും അതിനിടെ സംസ്ഥാനത്ത് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പ്രമുഖ നേതാക്കൾ ഇന്ന് എത്തുകയാണ്

ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കേന്ദ്രമന്ത്രി സുഷമാ സ്വരാജ് യു

മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചലച്ചിത്രതാരവും എം പി യുമായ ഹേമമാലിനി എന്നിവർ പ്രചാരണത്തിന് എത്തും ന്യൂസ് ഡെസ്ക് ആകാശവാണി

മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് സച്ചിൻ പൈലറ്റ് വസുന്ധര രാജ സിന്ധ്യ മന്ത്രിസഭയിലെ ചില അംഗങ്ങൾ എന്നിവർ ഇന്ന് പത്രിക സമർപ്പിക്കും പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ

ജെ

പ്രധ്ാനമന്ത്രി നരേന്ദ്രമോദി അടുത്തമാസം ആദ്യവാരം ഇരു സംസ്ഥാനങ്ങളിലും വിവിധ പ്രചാരണ റാലികളിൽ പങ്കെടുക്കും

എ അധൃക്ഷ സോണിയാഗാന്ധി വെള്ളിയാഴ്ച ഹൈദരാബാദിലെ മെഡ്ചലിൽ റാലിയെ അഭിസംബോധന ചെയ്യും

വിവിധ സംസ്കാരങ്ങളും വിശ്വാസങ്ങളും പിൻതുടരുന്ന സമൂഹത്തിൽ സഹിഷ്ണുത സഹവർത്തിത്വം സാഹോദര്യം തുടങ്ങിയവ ശക്തിപ്പെടുത്താൻ വാരാചരണം അവസരം തരുന്നു ഇതിന്റെ ഭാഗമായി മതേതരത്വം പ്രോത്സാഹിപ്പിക്കാനും വർഗ്ഗീയവൽക്കരണം അക്രമങ്ങൾ എന്നിവ തടയാനും ലക്ഷൃംവച്ചുള്ള വിവിധ പരിപാടികളും സിംപോസിയങ്ങളും സെമിനാറുകളും നടക്കും വാരാചരണത്തിന്റെ ആദ്യദിനമായ ഇന്ന് ദേശീയോദ്ഗ്രഥന ദിനമായാണ് ആചരിക്കുന്നത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ ഭാരതീയർക്കും റാണി ലക്ഷ്മിഭായി എന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു

നിലവിലെ സാഹചര്യത്തിൽ പ്രായോഗിക ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടിയാണ് വിധി നടപ്പാക്കാൻ സാവകാശം തേടുന്നത് അധികൃതരുമായും നിയമവിദഗ്ധരുമായും ആലോചിച്ച ശേഷമാണ് ദേവസ്വം ബോർഡ് സാവകാശ ഹർജി സമർപ്പിക്കുന്നത്

കുഴപ്പമുണ്ടാക്കാൻ വരുന്നവർക്ക് ഒപ്പം നിൽക്കാൻ പോലീസിനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ശബരിമലയെ ഗവൺമെന്റ് സംഘർഷ ഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണെന്ന് കണ്ണന്താനം ആരോപിച്ചു നിലയ്ക്കലിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകായിരുന്നു അദ്ദേഹം ശബരിമലയുടെ വികസനത്തിനായി കേന്ദ്രം നൽകിയ നൂറ് കോടി രൂപ ചെലവഴിച്ചിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ശബരിമലയിലെ അടിസ്ഥാന സൌകര്യത്തെ കുറിച്ച് പരിശോധിക്കാനാണ് താൻ എത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം വൃക്തമാക്കി

ലോക ശൌചാലയ ദിനമായ ഇന്ന് നീരവധി ബോധവൽക്കരണ പരിപാടികൾ രാജ്യത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്

കഴിഞ്ഞ് നാല് വർഷം കൊണ്ട് ശൌചലായ സൌകര്യങ്ങൾ ഗണ്യമായ രീതിയിൽ വർദ്ധിച്ചത് രാജ്യത്തിന് നേട്ടമാണ്

സ്വച്ച് ഭാരത് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ശുചീകരണ പ്രവർത്തനങ്ങളിൽ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന വെല്ലുവിളികൾ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ശൌചാലയ ദിനാചരണത്തിന്റെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്രമന്ത്രി നിർമ്മപ്പൂ സീതാരാമനും സിംഗപ്പൂർ പ്രതിരോധമന്ത്രി ഡോ എൻ ജി ഇംഗ് ഹെന്നുമായാണ് ദിദിന കൂടിക്കാഴ്ച ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണ കരാർ സംബന്ധിച്ചാണ്ട് ചർച്ച

മുൻ ലഫ്

ജോഷിയുമായും കൂടിക്കാഴ്ച നടത്തും

അമേരിക്കയുടെ രാഷ്ട്ര താൽപരൃങ്ങൾക്ക് ഗുണപ്രദമായ ഒന്നും ഇസ്താമബാദ് ചെയ്തില്ലെന്നും മറിച്ച് അൽഖയ്ദ നേതാവ് ഒസാമ ബിൻ ലാദനെ സഹായിക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു പാകിസ്ഥാൻ മിലിറ്ററി അക്കാദമിക്ക് സമീപമാണ് ലാദൻ ഒളിച്ചിരുന്നതെന്നും ഇതിനർത്ഥം ഇതെല്ലാവർക്കും അറിയാമായിരുന്നു എന്നും ട്രംപ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു

എസ് ഡോളർ സൈനിക സഹായം നൽകുന്ന നടപടി അമേരിക്ക നിർത്തിവച്ചിരിക്കുകയാണ്

ജർമ്മൻ താരം അലക്സാണ്ടർ സ്വരേവ് ആണ് ജോകോവിച്ചിനെ പരാജയപ്പെടുത്തി തന്റെ കരിയറിലെ ഏറ്റവും മികച്ച വിജയം സ്വന്തമാക്കിയത്

ഒരേ എടിപി ഫൈനൽസിൽ ജോക്കോവിച്ചിനെയും ഫെഡററെയും തോൽപ്പിച്ച ആദ്യ കളിക്കാരൻ കൂടിയാണ് സ്വരേവ്

ഭരണസ്തംഭനാവസ്ഥ പരിഹരിക്കുന്നതിനായി ഇന്നലെ വൈകിട്ട് പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുടെ നേതൃത്വത്തിൽ സർവ്വകക്ഷി സമ്മേളനം ചേർന്നെങ്കിലും സമവായത്തിലെത്താതെ പിരിയുകയായിരുന്നു സഭാ നടപടിക്രമങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന വിഷയത്തിൽ രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ ചേരുന്ന യോഗത്തിന് ശേഷമാകും സഭ സമ്മേളിക്കുക മഹിന്ദ രജപക്സെയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഗവൺമെന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയവിഷയത്തെ തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ച മുതലാണ് ശ്രീലങ്കൻ പാർലമെന്റ് തടസ്സപ്പെട്ടിരിക്കുന്നത്

രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണതോതിലാണെന്ന് മുഖ്യമന്ത്രി കെ പളനിസാമി അറിയിച്ചു നാശനഷ്ടങ്ങളുടെ സ്ഥിതിവിവരങ്ങൾ സംസ്ഥാന ഭരണകൂടം കേന്ദ്രത്തിന് അയച്ചതായി അദ്ദേഹം പറഞ്ഞു

ഫിജിയിലെ ലാംബാസയിൽ പൂൽച്ചെയാണ് ഭൂചലനം അനുഭവപ്പെട്ടത്

കഴിഞ്ഞ വർഷം കപ്പലുകൾ കൂട്ടിയിടിച്ചാണ് എണ്ണ ചോർച്ചയുണ്ടായത് തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന സ്വകാര്യ കപ്പലിൽ നിന്നാണ് ഇന്നലെ പുലർച്ചെ എണ്ണ ചോർന്നത്